ലോക്സഭ തെരഞ്ഞെടുപ്പിള്ളു അവസാന ഘട്ടത്തിലേക്കുള്ള പ്രച്ചാർണ്ട് ഉച്ചസ്ഥായിയിൽ

ജമ്മുകശ്മീരിൽ ്യൂസുരക്ഷാസേനയുമായി ഉണ്ടായ ന് ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു

തെച്ചിക്കോട്ട്കാവ് രാമചന്ദ്രൻ തെക്കേഗോപുരനട തുറന്നു നാളെ തൃശൂർപൂരം

ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിംങ്സ് പോരാട്ടം ഇന്ന്

ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലും കനത്ത പോളിങ്ങാണ് രേഖപ്പെടുത്തിയത്

കൂടുതൽ വിവരങ്ങളുമായി വോയിസ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉൾപ്പെടെയുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി

വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ്

പൊതുവെ സമാധനപരമായാണ് പോളിംഗ് നടക്കുന്നതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്

ഇതിനിടെ പശ്ചിമ ബംഗാളിലെ ഝാർഗാം ജില്ലയിൽ ശനിയാഴ്ച രാത്രിയോടെ ഒരു ബിജെപി പ്രവർത്തകനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി

എ ഗവൺമെന്റിനായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ഖുഷി നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുശക്തമായ ഇന്ത്യയ്ക്കുവേണ്ടി ബി ജെ

പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തിന്റെ വികസനം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഡെൽഹി ഔറംഗ്സ്ബ് ലൈനിലെ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി പറയുന്ന വെറുപ്പിന്റെ സന്ദേശമല്ല കോൺഗ്രസിന്റെ സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു കനത്ത സുരക്ഷയിലാണ് ശ്രീ

വിദേശകാരൃ മന്ത്രി സുഷമ സ്വരാജ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ യു

എ അധ്യക്ഷ സോണിയ ഗാന്ധി എ ഐ

സി

ഡൽഹിയിലെ സ്ഥാനാർത്ഥികളായ ഷീലാ ദീക്ഷിത് അജയ് മാക്കൻ ഗൌതം ഗംഭീർ എന്നിവരും ക്രിക്കറ്റ് താരം വിരാട് കൊഹ്ലിയും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു

വിയറ്റ്നാമിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

ഈ സാഹചര്യത്തിൽ അഹിംസ്കയിലൂന്നിയ ശ്രീബുദ്ധന്റെ ആശയങ്ങൾ ഏറെ പ്രസക്തമാണെന്ന് ഉപരാഷ്ട്രപ്പതി പറഞ്ഞു നാല് ദിവസത്തെ സ്റ്റൂർശ്നത്തിനായി എത്തിയ അദ്ദേഹം ഇന്നലെ വിയറ്റ്നാം പ്രധാനമന്ത്രി സുവാൻ ഫുക്കുമായി ഹനോയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപിപ്പിക്കാനും മേഖലയിലെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ നേതാക്കൾ തമ്മിൽ നടന്ന ചർച്ചയിൽ ധാരണയായി

ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യവിവരത്തെതുടർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് സുരക്ഷാസേന ഭീകരരെ വധിച്ചത് കൂടുതൽ ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് സുരക്ഷാ സേനയുടെ നിഗമനം

നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പോകുകയായിരുന്ന തിരികെ തെലങ്കാന സ്വദേശികളാണ് അപകടത്തിൽപെട്ടത്

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം കാർഷിക മേഖലകളിൽ സന്ദർശനം നടത്തിയ ശേഷം കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകും ഊർജ്ജവകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം വൈദ്യുതി മേഖലയിലുണ്ടായ നഷ്ടം വിലയിരുത്തും

മാതൃത്വത്തിന്റെ മഹത്വം ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതൃദിനം ആചരിക്കുന്നത്

ആധുനിക നഴ്സിങിന്റെ സ്ഥാപകയായ ഫ്ളോറൻസ് നൈറ്റിൻഗേലിന്റെ ജൻമദിനമാണ് നഴ്സസ്ദിനമായി ആചരിക്കുന്നത്

തുറമുഖ നഗരമായ ഗ്വാദറിലെ ഹോട്ടലിലാണ് ഭീകരാക്രമണം ഉണ്ടായത് സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു ഹോട്ടലിന്റെ നിയന്ത്രണം സൈനൃം ഏറ്റെടുത്തു ബെലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ആർക്ക്മണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു

ഭീകരവാദ സംഘടനകളായ ജയ്ഷേ ഇ മുഹമ്മദ് ജമാ അത്ത് മുംബൈ ആക്രമണത്തിന്റെ മുഖ്യസൂത്രധാരൻ ഹാഫിസ് ഉദ്വ സയ്ദിന്റെ ഫലാ ഇ ഇൻസാനിയത് ഫൌണ്ടേഷൻ എന്നിവയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി

സൌദി ഗവൺമെന്റ് മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടത് സൌദിയുടെ കിഴക്കൻ മേഖലയായ കാത്തിഫില്ലിലാണ് സംഭവം

ആയിരങ്ങളാണ് പൂരവിളംബര ചടങ്ങുകൾ കാണാനായി തേക്കിൻകാട് മൈതാനിയിൽ എത്തിയത് നാളെയാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർപൂരം

ഇത്തവണ പൂരത്തിന് കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്

ചെന്നൈ സൂപ്പർ കിങ്സ് ഇത് എട്ടാം തവണയാണ് ഐപിഎൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ എത്തുന്നത്

അന്ന് മുംബൈയ്ക്കായിരുന്നു ജയം

ആദ്യകാളിഫയറിൽ ചെന്നൈയെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസവുമായാണ് മുംബൈ ഇന്ന് മത്സരത്തിനിറങ്ങുന്നത്